നാളെ അദ്ദേഹം വയനാട്ടിലെത്തി നാമനിർദേശ പത്രിക നൽകും

എ സ്ഥാനാർത്ഥി

അസമിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴി ഞ്ഞെത്തുന്ന രാഹുലിനൊപ്പം എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയ ങ്കഗാന്ധിയും ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ഇന്ന് കോഴിക്കോട്ട് തങ്ങുന്ന രാഹുൽഗാന്ധി നാളെ രാവിലെ ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക് പോകും രാവിലെ പത്തോടെ എസ്

ജെ സ്കൂൾ ഗ്രൌണ്ടിൽ ഇറങ്ങുന്ന അദ്ദേഹം വയനാട് കലക്ട്രേറ്റിലെത്തി പത്രിക നൽകും

ജിയുടെ നേതൃത്വത്തിൽ വൻസുരക്ഷ യാണ് കൽപറ്റയിലും പരിസര പ്രദേശങ്ങളിലും ഒരുക്കിയിരിക്കു ന്നത് വയനാട്ടിലേക്ക് വരുന്ന രാഹുൽഗാന്ധിക്ക് ഇടതുമുന്നണിയുടെ കരുത്ത് ആ അങ്കത്തട്ടിൽ കാണാമെന്ന് മുഖ്യമന്ത്രി പിണറായി വി ജയൻ പറഞ്ഞു കോഴിക്കോട്ട് എൽ

എഫ് പ്രാചരണ യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏത് ബി ജെ പിയെ നേരിടാനാണ് അഖിലേന്ത്യ നേതാവ് വരുന്നതെന്ന് അദ്ദേഹം ചോദി ച്ചു

കോൺഗ്രസിനെ വളർത്താനാണോ ബി

പിയെ വളർത്താനാണോ കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് എല്ലാവരും ചിന്തിക്കണമെന്നും പിണറായി പറഞ്ഞു രാഹുൽഗാന്ധി മുഖ്യശത്രുവായ ബിജെപിയെ എതിരിടാൻ ധൈര്യം കാണിക്കാതെ വയനാട്ടിലെത്തി ഇടതുപക്ഷത്തെ എതിരി ടുന്നത് ബിജെപിയെ വളർത്താനാണെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആലപ്പുഴയിൽ ആരോപിച്ചു അമേ ഠിയിൽ പരാജയപ്പെടുമെന്ന ഭീതിയിലാണ് വയനാട്ടിൽ മത്സരിക്കു ന്നതെങ്കിൽ വയനാട്ടിലും പരാജയപ്പെടുമെന്നും ജനങ്ങൾ പിരിച്ചു വിടേണ്ട കാവൽക്കാരനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും യെച്ചൂരി പറഞ്ഞു ദേശീയ തലത്തിൽ ഒരു വിശാല മതേതര മുന്നണി രൂപപ്പെടാതെ പോയതിന് പ്രധാന കാരണം കേരളത്തിലെ സിപിഐഎം ആണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ വേർതിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനകൾ അങ്ങേയറ്റും അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർഥിയുടെ കൊടുവള്ളി മണ്ഡലം തെരഞ്ഞെടുപ്പു പര്യടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല ഉപരാഷ്ട്രപതിയെയും രാഷ്ട്രപതിയെയും കേരളം രാജ്യത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പ്രധാനമന്ത്രി കേരളത്തിൽനിന്ന് ഉണ്ടായിട്ടില്ലെന്നും രാഹുലിന്റെ വരവോടെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറുകയാണെന്നും ചെന്നിത്തല പറഞ്ഞു

എമ്മും ബി

പിയും ഒന്നായി മാറുന്ന കാഴ് ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു കൊലപാതക രാഷ്ട്രീയത്തിന് എതിരായി വികസന രാഷ്ട്രീയം അജണ്ടയാക്കിയാണ് യു

എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടു ന്നതെന്ന് കെ

സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു കാസർകോട് പാർലമെന്റ് മണ്ഡലം യു

എഫ് സ്ഥാനാർത്ഥിയുടെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കൺവെൻഷൻ ഇരിയയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേ ഹം രാജ്യസഭാ എം പിയും നടനുമായ സുരേഷ്ഗോപി തൃശൂരിൽ എൻ

എ സ്ഥാനാർത്ഥിയാകും സുരേഷ് ഗോപി ഉൾപ്പെടെ മൂന്ന് സ്ഥാനാർഥികളെ ഇന്നലെ വൈകിയാണ് ബി

അദ്ദേഹം വയനാട്ടിൽ രാഹുൽഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന സാഹചര്യത്തി ലാണ് തൃശൂരിൽ സുരേഷ്ഗോപിയെ എൻഡിഎ സ്ഥാനാർത്ഥിയാ ക്കിയത്

പഞ്ചാ ബിൽ ആറും ഗുജറാത്തിൽ നാലും ജാർഖണ്ഡിൽ മൂന്നും കർണാടക ഒഡീഷ സംസ്ഥാനങ്ങളിൽ രണ്ടു വീതവും സ്ഥാനാർത്ഥി കൾ ഇതിൽ ഉൾപെടുന്നു ഗുജറാത്തിലെ ഗാന്ധിന്ഗർ ലോക്സഭാ മണ്ഡലത്തിൽ ബി

പി അധ്യക്ഷൻ അമിത്ഷാക്കെതിരെ സി ജെ ചാവ്ദ എം

എ മത്സരിക്കും

വടക രയിൽ അഞ്ചും കണ്ണൂർ തൃശൂർ മണ്ഡലങ്ങളിൽ മൂന്നൂം വയനാ ട് മലപ്പുറം പാലക്കാട് എറണാകുളം പൊന്നാനി മണ്ഡലങ്ങളിൽ രണ്ടും കോഴിക്കോട് ചാലക്കുടി ഇടുക്കി കോട്ടയം മാവേലിക്കര കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഓരോ പത്രി കയും ആണ് സമർപ്പിച്ചത്

പത്രികാ സമർപ്പണം നാളെ സമാപി ക്കും വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർഥി തുഷാർവെള്ളാപ്പള്ളി ഇന്ന് പത്രിക നൽകും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു

എഫ് സ്ഥാനാർഥി കെ

കൊട്ടാരക്കര സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കോഴിക്കോട്ടെ എൻഡിഎ സ്ഥാനാർഥി പ്രകാശ് ബാബുവിന് നാമനിർദേശ പത്രിക സമർപ്പിക്കാൻ കോടതി അനുമതി നൽകി പത്തനംതിട്ട റാന്നി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോട്ടതിയാണ് പത്രിക സമർപ്പിക്കാൻ അനുമതി നൽകിയത് ശബരിമലയിൽ ചിത്തിര ആട്ട വിശേഷത്തിന് ദർശനത്തിനെത്തിയു സ്ത്രീയെ ആക്രമിച്ചെന്ന കേസിലാണ് പ്രകാശ് ബാബുവിനെ കോടതി റിമാൻഡ് ചെയ്തത് രാജസ്ഥാൻ ഗവർണർ കല്യാൺ സിംഗ് മാതൃകാപെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് കാണിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി രാം നാഥ് കോവിന്ദിന് കത്ത് നൽകി ബിജെപി പ്രവർത്തകൻ എന്ന നിലയിൽ പ്രധാനമന്ത്രിയായി നരേന്ദ്ര മോദി വീണ്ടും അധികാരത്തിൽ പരണമെന്നാണ് തന്റെ ആഗ്രഹമെന്ന കല്യാൺ സിംഗിന്റെ പ്രസ്താവനയാണ് വിവാദമായത് അലിഗഡിൽ ബിജെപി പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് കല്യാൺ സിംഗ് ഇക്കാര്യം പറഞ്ഞത് ഭരണഘടനാ പദവിയിലുള്ളവർ ഒരു രാഷ്ട്രീയപാർട്ടിയുടെയും പക്ഷം പിടിക്കരുത് എന്ന നിയമം കല്യാൺ സിംഗ് ലംഘിച്ചതായി കണ്ടെത്തിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പാക്കുന്നതിൽ റെയിൽവേ ജാഗ്രത കാണിക്കുന്നില്ലെന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമർശിച്ചു റെയിൽവേ ടിക്കറ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ ചിത്രം അ ച്ചടിച്ചതും ട്രെയിനുകളിൽ ബിജെപിയുടെ പ്രചാരണ മുദ്രാവാക്യം അച്ചടിച്ച കപ്പിൽ ചായ വിതരണം ചെയ്തതും വിവാദമായ സാഹ ചര്യത്തിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷണം

ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നു ഡൽഹി കോൺഗ്രസ് അധ്യക്ഷ ഷീലാദീക്ഷിതും ഡ്രൽഹിയുടെ ചുമതല വഹിക്കുന്ന പി സി ചാക്കോയും പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയെ കണ്ട് ഇക്കാര്യം ചർച്ച ചെയ്തു തുടർന്ന് ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കളുമായി ഷീലാദീക്ഷിത് ചർച്ച നടത്തിയെ ങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായില്ല

ഗാനത്തിന്റെ ഡിവിഡി പ്രകാശനം ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഗവർണർ പി സദാശിവം നിർവഹി ക്കും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും താപനിലയിൽ വർധനയു ണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു ആലപ്പുഴ പാലക്കാട് ജില്ലകളിൽ ശരാശരി താപനില മൂന്നു മുതൽ നാല് വരെ ഡിഗ്രി സെൽഷ്യസ് വർധിക്കും തിരുവ നന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടു ക്കി തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലക ളിൽ രണ്ടുമുതൽ മൂന്നു വരെ ഡിഗ്രി സെൽഷ്യസാണ് വർധിക്കു ക ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

ആലപ്പുഴയിൽ വേനൽച്ചൂടിൽ രണ്ടുപേർക്ക് കൂടി പൊള്ളലേറ്റു സൂര്യാതപത്തിൽ നിന്നും മൃഗങ്ങളെ രക്ഷിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് ജില്ലയിൽ ബോധവത്കരണ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ജയ്പൂരിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ബാംഗ്ലൂർ റോയൽ ചാലഞ്ചേഴ്സിന് എതിരെ രാജസ്ഥാൻ റോയൽസ് ഏഴ് വിക്കറ്റിന് വിജയിച്ചു

ഇന്ന് വൈകീട്ട് എട്ടിന് മുംബൈ വാങ്കഡേ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിംഗ്സുമായി ഏറ്റുമുട്ടും

ഐ മുൻ ദേശീയ പ്രസിഡന്റും നാഷണൽ സെക്രട്ട റിയേറ്റ് അംഗവുമായ എ

ഖബറടക്കം രാവിലെ പത്തിന് മല പ്പുറം എടവണ്ണ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും കോഴിക്കോട്ട് കടലിൽ കുളിക്കുന്നതിനിടെ തിരയിലുകപ്പെട്ട മകനെ രക്ഷിക്കാൻ ശ്രമിച്ച പിതാവ് മുങ്ങി മരിച്ചു ഗാന്ധിറോട്ടിലെ പ്രതാ പനാണ് മരിച്ചത് തിരയിൽപെട്ട മകനെയും രണ്ടു കൂട്ടുകാരെയും രക്ഷപ്പെടുത്തിയ പ്രതാപൻ തിരയിൽ അകപ്പെടുകയായിരുന്നു ഇടുക്കി അടിമാലി പതിനാലാം മൈലിന് സമീപം വാഹനാപകട ത്തിൽ ഒരാൾ മരിച്ചു തൃശൂർ പഴയന്നൂർ സ്വദേശി കെ

മൂന്നാറിൽ വിനോദ സഞ്ചാരത്തിനെത്തി യ സംഘം സഞ്ചരിച്ച കാർ അടിമാലി പതിനാലാം മൈൽ പള്ളി പ ടിക്ക് സമീപം കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം പൊതുതെരഞ്ഞെടുപ്പിൽ വോട്ടറാകാനുള്ള അപേക്ഷകൾ വേഗ ത്തിൽ തീർപ്പാക്കി ആലപ്പുഴ ജില്ല സംസ്ഥാനത്ത് ഒന്നാമതായി ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരമാണിത്

തെരഞ്ഞെടുപ്പിന് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ പ്രദേശത്തേക്കും വോട്ടിങ് യന്ത്രങ്ങൾ വിതരണത്തിനായി തരംതിരിക്കുന്ന ആദ്യഘട്ടം പൂർത്തിയായതായി ജില്ലാകലക്ടർ പി

തരംതിരിക്കൽ കഴിഞ്ഞ വോട്ടിങ് യന്ത്ര ങ്ങൾ ജില്ലയിലെ അഞ്ച് അസിസ്റ്റന്റ് റിട്ടേണിങ് ഓഫീസർമാരുടെ ചുമതലയിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയതായി അദ്ദേഹം പറഞ്ഞു വോട്ടർമാരെ വോട്ടിങ് യന്ത്രവും വിവിപാറ്റ് സംവിധാനവും പരി ചയപ്പെടുത്താനും തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അവരിലെത്തി ക്കാനും വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാനും സ്വീപിന്റെ ഭാഗമായ വോട്ടുവണ്ടി ഇടുക്കി ഉടുമ്പൻചോല നിയോജക് മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പര്യടനം ആരംഭിക്കും മൂന്ന് ദിവസമാണ് വോട്ടുവണ്ടി പര്യടനം നടത്തുക